വാർത്തകൾ വിശദമായി രാജ്യത്തെ ദേശീയ പാത ടോൾ പ്ലാസകളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഫാസ്ടാഗ് നിർബന്ധമാകും ടോൾപ്പാസകളിലെ വാഹനതിരക്ക് ഒഴിവാക്കാനും സമയവും ഇന്ധനവും ലാഭിക്കാനും ഇലക്ട്രോണിക് പണമിടപാട് പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഫാസ്ടാഗ് നടപ്പാക്കുന്നതെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു പണം കൊടുത്ത് ടോൾപ്ലാസകളിലെ ഒരു ലൈൻ വഴി മാത്രമേ ഇനി കടന്നുപോകാൻ ആവു ഫാസ്ടാഗ് ലൈനിൽ കയറുന്ന ടാഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ നിന്ന് ഇരട്ടി തുക പിഴ ഈടാക്കും രും സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ റംസാൻ ആഘോഷങ്ങളേയും പരീക്ഷകളേയും ബാധിക്കാത്ത തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ വിവിധ കക്ഷികളുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തിയ ശേഷം വൈകീട്ട് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടത്തും വോട്ടെടുപ്പ് സമയം നീട്ടണമെന്ന നിർദേശം പരിഗണനയിലുണ്ടെന്നും കോവിഡ് നിബന്ധനകൾ കൃത്യമായി പാലിച്ചായിരിക്കും തെരഞ്ഞെടുപ്പെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി രുര തിരുവനന്തപുരത്ത് കേരളാ രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ആദ്യ മേഖലാ പ്രദർശനത്തിന് തിരശീല വീണു കൊച്ചിയിൽ രണ്ടാമത്തെ മേഖലാ പ്രദർശനം മറ്റന്നാൾ തുടങ്ങും

രംഭ സംസ്ഥാനത്തെ മൂന്ന് വൻകിട വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ വിഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും സ്വപ്ന പദ്ധതിയായ കെ ഫോണിന്റെ ആദ്യഘട്ടം പശ്ചിമ തീര ജലപാതയുടെ പൂർത്തീകരിച്ച ഒന്നാംഘട്ടം കൊച്ചി വാട്ടർ മെട്രോയുടെ വൈറ്റില കാക്കനാട് ഇൻഫോ പാർക്ക് റൂട്ടിലെ ഗതാഗതം എന്നീ പദ്ധതികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്

മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഡിയോ കോൺഫറൻസിങ്ങിലൂടെ വിവിധ ജില്ലകളിലെ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ പുറമെ റവന്യൂ വകുപ്പിന്റെ നിരവധി പദ്ധതികളും അദ്ദേഹം നാടിന് സമർപ്പിക്കും

രുഭ വയനാട് മെഡിക്കൽ കോളജ് മന്ത്രി കെ

ശൈലജ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കൌൺസിലിന്റെ അനുമതി ലഭിച്ചാൽ കോളജിൽ ഈ വർഷം തന്നെ വിദ്യാർത്ഥി പ്രവേശനം സാധ്യമാകുമെന്ന് മന്ത്രി പറഞ്ഞു

തലപ്പുഴ ബോയ്സ് ടൌണിൽ അരിവാൾ രോഗികൾക്കായി നിർമ്മിക്കുന്ന പരിചരണ ഗവേഷണ കേന്ദ്രത്തിന് മന്ത്രി തറക്കല്ലിടുകയും ചെയ്തു

രുര സ്റ്റുഡന്റ് ഡോക്ടർ കേഡറ്റ് പദ്ധതി മന്ത്രി കെ

ശൈലജ വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലൂടെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന പദ്ധതിയാണിത് തെരഞ്ഞെടുത്ത കുട്ടികൾ വഴി എല്ലാ കുട്ടികളുടേയും മാനസിക ശാരീരിക കണ്ടെത്തി പരിഹാരമുണ്ടാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം രും ഇടുക്കി പെട്ടിമുടി ദുരന്തബാധിതർക്കായി കുറ്റ്യാർവാലിയിൽ പണികഴിപ്പിച്ച എട്ട് വീടുകൾ കുടുംബങ്ങൾക്ക് കൈമാറി ദുരിതം അനുഭവിക്കുന്നവർക്ക് പുനരധിവാസമടക്കം മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തതായി മന്ത്രി ഇ

മൂന്നാർ ടീക്കൌണ്ടിയിൽ സംഘടിപ്പിച്ച താക്കോൽദാന ചടങ്ങ് മന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു മന്ത്രി എം

മണി കുറ്റ്യാർവാലിയിൽ നേരിട്ടെത്തി താക്കോൽ കുടുംബങ്ങൾക്ക് കൈമാറി നെടുങ്കണ്ടം മിനി വൈദ്യുതി ഭവൻ സമുച്ചയത്തിന്റെ നിർമ്മാണവും മന്ത്രി എം

മണി ഉദ്ഘാടനം ചെയ്തു രുഭ അങ്കമാലിക്ക് സമീപം നവീകരണ ജോലികൾ പൂർത്തിയാക്കിയ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം പാർക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഹരിത കാർപ്പെറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാർക്കിന്റെ നവീകരണം പൂർത്തിയാക്കിയത് രും കോഴിക്കോട് പേരാമ്പ്ര ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർമ്മിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം മന്ത്രി ജി സുധാകരൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു

രുര കോഴിക്കോട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിസം പരിപാടിയിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ വീഡിയോ കോൺഫറൻസിലൂടെ മന്ത്രി സി

നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂൾ ഫോർ ഗേൾസിൽ ശീതീകരിച്ച മീറ്റിങ്ങ് ഹാളും മന്ത്രി ഉദ്ഘാടനം ചെയ്തു

വാസുദേവൻ നായരും കുട്ടികൾക്കായി തുറന്നുകൊടുത്തു

പൈതൃക ടൂറിസം പദ്ധതികൾക്ക് പുറമെ നെല്ല്യാമ്പതി ടൂറിസം വികസനം മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ രണ്ടാംഘട്ടം തിരുനെല്ലി ക്ഷേത്ര തീർത്ഥാടന പദ്ധതി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു മലപ്പുറം അ ് അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിന് സമീപം മാമാങ്കം ചാവേർ തറയിലെ പൈതൃക ടൂറിസം പദ്ധതിയുടെ നിർമ്മാണവും കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സ്പീക്കർ പി

ഒന്നര കോടി രൂപയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് രുമ ഒരു റേഷൻ കാർഡിലും ഉൾപ്പെടാത്ത സ്ഥാപനങ്ങൾക്ക് റേഷൻ വിഹിതം ലഭ്യമാക്കുന്ന എൻപിഐ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണം മന്ത്രി പി തിലോത്തമൻ വൈകീട്ട് കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും വൃദ്ധ സദനങ്ങൾ കന്യാസ്ത്രീ മഠങ്ങൾ അഗതി മന്ദിരം തുടങ്ങിയവയ്ക്കാണ് ഈ സംവിധാനത്തിൽ റേഷൻ വിഹിതം ലഭ്യമാക്കുന്നത്

ദേഴ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ നടന്ന രണ്ട് മത്സരങ്ങളിൽ എടികെ മോഹൻബഗാനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജേതാക്കളായി

ഇന്ന് വൈകീട്ട് ഏഴരക്ക് മുംബൈ സിറ്റി ബെങ്കലൂരു എഫ്സിയെ നേരിടും രേര ബെങ്കലൂരുവിൽ കാഴ്ച്ചാ പരിമിതരുടെ നാഗേഷ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഹരിയാനയോട് തോറ്റ് കേരളം ക്വാർട്ടറിൽ നിന്ന് പുറത്തായി ഇന്ന് സെമി ഫൈനൽ മത്സരങ്ങളിൽ ഹരിയാന ആന്ധ്രയേയും കർണാടക ഒഡീഷയെയും നേരിടും രും എൽഡിഎഫിന്റെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടങ്ങി ഇന്നും നാളെയും ജില്ലയിൽ പര്യടനം തുടരും തെക്കൻ മേഖലാ ജാഥ ഇന്ന് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തും വൈകീട്ട് അങ്കമാലിയിൽ സമാപിക്കും രുര മുസ്ലീം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ഇന്ന് മലപ്പുറത്ത് ചേരും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുവിഭജനം സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയവ ചർച്ച ചെയ്യാനാണ് പ്രവർത്തക സമിതി ചേരുന്നത് രംഭ വയനാട് എറണാകുളം ജില്ലകളിലെ സാന്ത്വന സ്പർശം അദാലത്തുകൾ രാവിലെ തുടങ്ങും വയനാട് ജില്ലാതല അദാലത്ത് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും

ജയരാജൻ എന്നിവർ നേതൃത്വം നൽകും

രംഭ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്കുകളിൽ സമാപിച്ച സാന്ത്വന സ്പർശം അദാലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് കോടി പതിനേഴര ലക്ഷത്തിൽ പരം രൂപ അനുവദിച്ചു

എഴക്കാട് സ്വദേശികളായ വിഘ്നേശ് അനന്തു സിദ്ധാർത്ഥ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയായിരുന്നു അപകടം

രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു